രാജ്യത്തെ യുവജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സ്വീകരിച്ചവരുമായി പ്രധാനമന്ത്രി ഈ സംവദിക്കും

എ

അവതരിപ്പിച്ച പ്രമേയം നിയമസഭ പാസാക്കി

പ്രതിനിധികളുമായി കേന്ദ്രസർക്കാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും

സിറ്റിയെ നേരിടും

കോവിഡിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ യുവാക്കൾ വലിയ പങ്കാണ് വഹിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അസമിനെയും വടക്കുകിഴക്ക്ൻ മേഖലയെയും പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ വൃദ്യാർത്ഥികൾ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു പ്രവടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് കേന്ദ്രൂ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു അ്ത്ര് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു

കുത്തിവയ്പ് സ്വീകരിച്ചവർ തങ്ങളുടെ അനുഭവം പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും പിന്നീട് വാക്സിൻ കുത്തിവയ്പ്പിന്റെ തുടർന്നുളള സുഗമമായ നടത്തിപ്പു സംബന്ധിച്ച് ശാസ്ത്രജ്ഞർ രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും

വിശദാംശങ്ങളുമായി ലക്ഷ്മി മോഹൻ

അതേ സമയം രാജ്യത്ത് കോവിഡ് രോഗ്മുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്

മ്യാൻമാർ സ്റ്റേറ്റ് കൌൺസിലർ ഓങ് സാൻ സൂചിയുമായി കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യം വാഗ്ദാനം ചെയ്തിരുന്നു സീഷെൽസിലും ഇന്ത്യയുടെ വാക്സിൻ മൈത്രി പരിപാടിയുടെ ഭാഗമായി അമ്പതിനായിരം ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഇന്ന് എത്തിക്കും മൌറീഷ്യസിലും ഒരു ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഇന്നെത്തും രാജ്യത്തെ ആരോഗ്യപ്രവർത്തകരുടെ നല്ല വിഭ്രാഗ്നത്തിനും വാക്സിൻ നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്

മഹാമാരിയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേപ്പാളിനെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു

കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് ഒന്നു മുതൽ ഒന്നര വർഷക്കാലം വരെ മരവിപ്പിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നിയമങ്ങൾ് റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഇന്നലെ ചേർന്ന സംയുക്ത കിസാൻ മോർച്ച യോഗത്തിന്റെ തീരുമാനം

കൊൽക്കൊത്തയിലെ ദേശീയ ഗ്രന്ഥശാലയിലും വ്വിക്ട്ടോറിയ സ്മാരത്തിലും നടക്കുന്ന രണ്ട് ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും നേതാജിയെക്കുറിച്ചുള്ള ആന്ത്ാർാഷ്ട്ര സെമിനാറിൽ പ്രധാനമന്ത്രി സംസാരിക്കും

ജി റിപ്പോർട്ടിന് എതിരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച ് പ്രമേയം നിയമസഭ പാസാക്കി പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടെയാണ് പ്രമേയം പാസാക്കിയത്

എ ജി യുടെ കരട് റിപ്പോർട്ടിൽ നിന്നും വൃത്യസ്തമായി അന്തിമറിപ്പോർട്ടിൽ ചില കൂട്ടിച്ചേർക്കൽ നടത്തിയത് നീതിയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിൽ കിഫ്ബിയെക്കുറിച്ച് സി

ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് പ്രമേയത്തിലൂടെ സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷത്തെ വി

എന്നാൽ നടപടിക്രമം പാലിക്കാതെയുള്ള സി എ ജി റിപ്പോർട്ടിൽ എതിർപ്പ് അറിയിക്കാനുള്ള അവകാശം സഭയ്ക്കയുണ്ട് എന്ന് സ്പീക്കർ അറിയിച്ചു

ജോർജിനെ ശാസിക്കണമെന്ന നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്താണ് ശാസന

സഭയുടെ ശ്രീസ്ന് ബഹുമാനപൂർവം സ്വീകരിക്കുകയാണെന്ന് പി

ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ശ്രീ

ഏറ്റവും കൂടുതൽ സിറ്റിംഗ് എം എൽ എമാരെ നഷ്ടമായതും ഈ സഭയുടെ കാലത്താണ്

ഡി എഫ് വിജയം നേടി

കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രില്ല്ങ്കേരി ഡിവിഷനിൽ എൽ

എഫ് സ്ഥാനാർത്ഥി അഡ

മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ തീപിടുത്തമുണ്ടായ സ്ഥലം ഇന്ന് സന്ദർശിക്കും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ തീപിടുത്തതിൽ അഞ്ചു പേരാണ് മരിച്ചത്

നിലവിലുള്ള സംവരണ വിഭാഗങ്ങളെ ബാധിക്കാതെയാണ് തൊഴിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നതെന്ന് സർക്കാർ വൃക്തമാക്കിയിട്ടുണ്ട്

പത്ത് അംഗീകൃത പ്രതിപക്ഷ പാർട്ടികളുടെ ് പ്രതിനിധികളാണ് രണ്ട് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിനെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ സമീപിച്ചത്